സുഭിക്ഷ കേരളത്തിന് തുടക്കമായി

പ്രതിദിനം പ്രതിരോധൂർ എന്ന പേരിൽ ആരോഗ്യ ജാഗ്രതാ പരിപാടി

സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ കനത്ത മഴ

മഴക്കെടുതി നേരിടാനും ദുരിതാശ്ചാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും സംവിധാനങ്ങൾ സജ്ജം

ആലപ്പുഴയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടത്തിക്കു പ്രിശോധനയിലാണ് ഫലം നെഗറ്റീവായത്

ആരാധനാലയങ്ങൾ ഷോപ്പിംഗ് മാളുകൾ ഹോട്ടലുകൾ റെസ്റ്റോറന്റുകൾ എന്നിവ നിബന്ധനകളോടെ മറ്റെന്നാൾ മുതൽ പ്രവർത്തിക്കാനും ഗവൺമെന്റ് അനുമതി നൽകി

കേന്ദ്രം പ്രഖ്യാപിച്ച ലോക്ക്ഡൌൺ ഇളവുകളുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് ചൊവ്വാഴ്ച മുതൽ കൂടുതൽ ഇളവുകൾ നിലവിൽ വരുകയാണ്

ആറ് അടി അകലം പാലിക്കുകയും മുഖാവരണം ധരിക്കുകയും തുടങ്ങിയവയാണ് മാളുകളിലും റെസ്റ്റോറന്റുകളിലും മറ്റ് ജോലി സ്ഥലങ്ങളിലും പാലിക്കേണ്ട പ്രധാന നിർദ്ദേശം ആരാധനാലയങ്ങളും ഷോപ്പിംഗ് മാളുകൾ ഹോട്ടലുകൾ റെസ്റ്റോറന്റുകൾ എന്നിവയും തുറന്ന് പ്രവർത്തിക്കുന്നതിന് മുന്നോടിയായി ശുചീകരണം നാളെ നടത്തണമെന്നും ഗവൺമെന്റ് നിർദ്ദേശിച്ചിട്ടുണ്ട് ആരാധനാലയത്തിലെ വിഗ്രഹങ്ങളിലും പരിശുദ്ധ ഗ്രന്ഥങ്ങളിലും തൊടാൻ ഭക്തരെ അനുവദിക്കില്ല

പ്രമുഖ് ക്ഷേത്രങ്ങളിൽ ഓൺലൈൻ വഴി ദർശനം ബുക്ക് ചെയ്യുന്നതിന് അവസരമൊരുക്കിയിട്ടുണ്ട്

എന്നാൽ അനുമതി ഉണ്ടെങ്കിലും രോഗവ്യാപനത്തിൽ കു്റവില്ലാത്തതിനാൽ ഉടൻ തുറക്കില്ലെന്നും വിവിധ പള്ളി മഹല്ല് കമ്മിറ്റികൾ വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ആകാശവാണി

എല്ലാ ഞായറാഴ്ചകളിലും തുടരുന്ന ലോക്ക്ഡൌണിൽ അവശ്യ വിഭാഗത്തിലുള്ളവർക്ക് മാത്രമാണ് ഇളവ് അനുവദിച്ചിട്ടുള്ളത് പാൽ സംഭരണത്തിനും വിതരണത്തിനും തടസ്സമില്ല

ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ കൃഷി അനുബന്ധ പദ്ധതിയായ സുഭിക്ഷ കേരളത്തിന് തുടക്കമായി തദ്ദേശസ്വയംഭരണ വകുപ്പ് മന്ത്രി എ

മൊയ്തീൻ ആകാശവാണിയോട്

രാജൃത്ത് കോവിഡ് ബാധ റിപ്പോർട്ട് ചെയ്തതിനുശേഷം ഉണ്ടാകുന്ന ഏറ്റവും ഉയർന്ന നിരക്കാണിത്

ആരോഗൃ ജാഗ്രതയുടെ ഭാഗമായി പ്രതിദിനം പ്രതിരോധം എന്ന പേരിലാണ് പകർച്ചവ്യാധി പ്രതിരോധം

കിഴക്കൻ ലഡാക്കിലെ മോൾദോ ചുസൂൾ അതിർത്തി പോയിന്റിൽ ഇന്നലെ നടന്ന ഉന്നതതല സൈനിക ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് തീരുമാനം

വെള്ളിയാഴ്ച വൈകിട്ടാണ് മാലിയിൽ നിന്നു് കുപ്പൽ യാത്ര ആരംഭിച്ചത്

ഇന്ന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്

സാധാരണനിലയിൽ കവിഞ്ഞ മഴയുണ്ടാകുമെന്നാണ് വിദഗ്ധർ നൽകുന്ന സൂചന

പീഡനത്തിനിരയായ യുവതി പ്രതിയെ തിരിച്ചറിഞ്ഞതിനുശേഷം ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി

എക്സൈസ് റെയ്ഡ് കോട്ടയത്ത് എക്സൈസ് റെയിഡിൽ വാറ്റ് ചാരായവും കോടയും പിടിച്ചെടുത്തു

കെ കെ ശൈലജ കാസർകോട് ജില്ലയിൽ എൻഡോ സൾഫാൻ പാക്കേജിൽപ്പെടുത്തി നിർമ്മിച്ച പൂടംകല്ലിലെ താലൂക്ക് ആശുപത്രി കെട്ടിടവും വെള്ളരിക്കുണ്ട് താലൂക്ക് ഓഫീസിന്റെ പുതിയ കെട്ടിടവും ആരോഗ്യമന്ത്രി കെ

വീഡിയോ കോൺഫറൻസിങിലൂടെയാണ് ചടങ്ങ്